ഭൂമിപൂജയോടെ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു

കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധൃത്യെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വയനാട് ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലെർട്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമേട്ട്രി രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു

ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ്ണ അധ്യായമാണ് രചിക്കപ്പെട്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പ്രധാനമന്ത്രി രാമക്ഷേത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ ആയിരുന്നു ചടങ്ങുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ ഒരുക്കിയിരുന്നത് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

ഇന്ത്യയിൽ കൊറോണ് ക്ക്പെറസ് റിപ്പോർട്ട് ചെയ്ത ശേഷം ആദ്യമായാണ് ഇത്രയും ഉയർന്ന രോഗമുക്തി നിരക്ക്

ഇതുവരെ രണ്ട് കോടിയിലധികം കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയത്

രോഗ ബാധിതരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ

കോവിഡ് പ്രതിസന്ധി കാലത്ത് ഭക്ഷ്യധാന്യം ലഭിക്കാതെ പാവപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാനാണ് ഗരൂീബ് കല്യാൺ പാക്കേജിന്റെ ഭാഗമായി ഈ പദ്ധതി നടപ്പാക്കിയുത് പ്രതിമാസം ഒരു വൃക്തിക്ക് അഞ്ചു കിലോ എന്ന നിരക്കിലാണ് ഇതിലൂടെ സൌജനൃമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം പ്രെയ്യുന്നത്

ഈ മാസം ഒന്നിന് തുടക്കം കൂറിച്ച പരിപാടികൾ കൊവിഡ് മുന്നണിപ്പോരാളികൾക്കുള്ള രാജ്യത്തിന്റെ ആദരവും അഭിവാദ്യവും രേഖപ്പെടുത്തുന്നതിനായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പോർബന്ദർ ഹൈദരാബാദ് ബംഗളൂരു റായ്പൂർ അമൃത്സർ ഗുവാഹട്ടി അലഹബാദ് കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ഇതുവരെ പരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു

കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് പ്രെയ്തിട്ടുള്ളത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്

കേരള തീരത്തു നിന്നും മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുതെന്നും നിർദേശമുണ്ട്

ഇന്ത്യയെ ഒരു വിജ്ഞാന ശക്തികേന്ദ്രം ആക്കുന്നതിനു വേണ്ടി വിദ്യാഭ്യാസം ഗവേഷണം കണ്ടുപിടിത്തം എന്നീ മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ ആണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഇതിനായി കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ കൈക്കൊണ്ട നടപടികളിലൂടെ രാജൃത്തെ വിദ്യാഭ്യാസ അടിസ്ഥാനസൌകരൃ മേഖലയിൽ ശക്തമായ അടിത്തറ സൃഷ്ടിക്കാൻ സാധിച്ചു എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു

ഇ വിദ്യ പ്രധാനമന്ത്രി ഇന്നവേഷൻ ലേണിങ് പ്രോഗ്രാം മനോദർപ്പൺ പരിപാടി എന്നിവ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ ഏറെ ഫലപ്രദമായിട്ടുണ്ട്

കേന്ദ്രത്തിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കോടതിയിൽ ഹാജരായത് നടന്റെ മരണത്തിന് പിന്നിലെ സത്യം ഇനിയും പുറത്ത് വരേണ്ടതുണ്ടെന്ന് പട്നയിൽ നിന്ന് മുംബൈയിലേക്ക് എഫ്ഐആർ മാറ്റണമെന്ന നടി റിയ ചക്രബർത്തിയുടെ അപേക്ഷ പരിഗണിക്കവേ ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ കോടതി മുംബൈ പോലീസിന് നിർദേശം നൽകി